കോടിരൂപയുടെ ഇടക്കാല ദുരിതാശ്വാസം

സാധനങ്ങൾ മാവേലി സ്റ്റോറുകളിൽ ലഭ്യമാക്കുമെന്ന് മന്ത്രി പി തിലോത്തമൻ

ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സൈനിക അധികൃതർ

പ്രളയക്കെടുതി വിലയിരുത്തിയ ശേഷം പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങി

വെള്ളപ്പൊക്കത്തിൽ വീട് നശിച്ചവർക്ക് പ്രപ്രധാൻ മന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകൾ നൽകാൻ തീരുമാനമായി

പ്രളയക്കെടുതിയിൽ തകർന്ന ദേശീയപ്പാതകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിക്കുന്നതിന് സംസ്ഥാനത്തിന് വേണ്ട സഹായങ്ങൾ നൽകാൻ എൻ

സി പി ജി സിഐ എൽ തുടങ്ങിയ കേന്ദ്രപൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി പ്രളയക്കെടുതി നേരിടുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചു നടപടികളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ടട കൊല്ലം മഴ കൊല്ലം ജില്ലയിൽ പുലർച്ചെ ആരംഭിച്ച ശക്തമായ മഴയ്ക്ക് രാവിലെ ഏഴരയോടെ കുറവുണ്ടായെങ്കിലും മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുംവിധം ആകാശം മേഘാവൃതമായി തുടരുന്നത് ആശങ്ക നിലനിർത്തുന്നു പുനലൂർ പത്തനാപുരം മേഖലകളിലും രാത്രിയും പുലർച്ചെയും മഴ പെയ്തു

പരമാവധി സംഭരണ സംഭരണശേഷിയോടടുത്ത് തുടരുന്നതിനാൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തേണ്ടി വരുമെന്ന് അധികൃതർ പറഞ്ഞു

കോഴഞ്ചേരി താലൂക്കിലെ ഒറ്റപ്പെട്ട മേഖലകൾ കേന്ദ്രീകരിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി

ഇതുമൂലം പുഴ ഒഴുകുന്ന മലപ്പുറം തിരൂരങ്ങാടി പരപ്പനങ്ങാടി മേഖലകളിൽ വെള്ളക്കെട്ട് തുടരുന്നു

മരങ്ങൾ അടിയന്തിരമായി നീക്കം ചെയ്ത് പുഴ കൂടുതലായി കരയിലേക്കൊഴുകുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു

ഇടമലയാറിലെയും ജലനിരപ്പ് കുറഞ്ഞു

ഇപ്പോഴും നിരവധി പേർ വിവിധയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്

ഫെയ്സ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മുഖ്യമന്ത്രി രക്ഷാ പ്രവർത്തനത്തെക്കുറിച്ച് വിവരിച്ചത്

തിലോത്തമൻ പ്രളയത്തെ തുടർന്ന് സംസ്ഥാനത്ത് തുറന്നിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്കായി മാവേലി സ്റ്റോറുകളെ സമീപിക്കാമെന്ന് ഭക്ഷ്യ സിവിൽ സർവീസ് വകുപ്പ് മന്ത്രി പി

ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമുള്ള അരിക്കും പലവ്യഞ്ജനങ്ങൾക്കുമായി ക്യാമ്പുകളുടെ ചുമതലയുള്ള വില്ലേജ് ഓഫീസർ നൽകുന്ന ലിസ്റ്റ് പ്രകാരം സാധനങ്ങൾ നൽകുവാൻ ബന്ധപ്പെട്ട മാവേലിസ്റ്റോർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു ട്ടടടടടടടടടടടടട ബോട്ടുകൾ തുടങ്ങി അഞ്ച് ദിവസമായിട്ടും പ്രളയക്കെടുതി ദുരിതാശ്വാസത്തിനായി ഹൌസ് ബോട്ടുകൾ വിട്ടു നൽകാൻ വിസമ്മതിക്കുന്ന ബോട്ടുടമകളെ അറ്സ്റ്റ് ചെയ്ത് നീക്കാനും ഇവരുടെ ബോട്ടുകൾ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കാനും പൊതുമരാമത്ത് വകുപ്പ്മന്ത്രി ജി

ബോട്ട് ഓട്ടിക്കാൻ തയ്യാറാകാത്ത ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കാനു ് മ്പൂർദ്ദേശത്തിൽ പറയുന്നു

ഇതു മുൻനിർത്തി കളക്ഷൻ സെന്ററുകളിലേക്ക് എത്തിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ കുപ്പിവെള്ളം അവൽ മലർ ശർക്കര ബിസ്ക്കറ്റ് ഡ്രൈ ഫ്രൂട്ട്സ് ചോക്കലേറ്റ് ബൺ എന്നിവയ്ക്കു പ്രാധാനൃം നൽകണമെന്നും സൈനിക അധികൃതർ പറയുന്നു

ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുപോകുന്നതിനു മേൽനോട്ടം വഹിക്കാൻ ജില്ലാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് ഭക്ഷ്യവസ്തുക്കൾ സ്വീകരിക്കുന്നതിന് കളക്ഷൻ കേന്ദ്രങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടെന്നത് വ്യാജ പ്രചരണമാണെന്ന് അധികൃതർ അറിയിച്ചു

കൊട്ടിയൂർ വെള്ളാട് കോളയാട് വില്ലേജുകളിലാണ് പുതുതായി ക്യാമ്പുകൾ തുടങ്ങിയത് നേരത്തേയുണ്ടായിരുന്ന ചില ക്യാമ്പുകൾ ആളുകൾ വീടുകളിലേക്ക് തിരിച്ചുപോയതിനെ തുടർന്ന് ഒഴിവാക്കി

ഐ സംവിധാനങ്ങൾ ഉപയോഗിച്ച് രാജ്യത്തിന്കത്തും പുറത്തുമുള്ളവർക്ക് പണം അടയ്ക്കാം